ഗുജറാത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ

ഹോക്കി യൂറോപ്യൻ ടൂർ പരമ്പരയിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും

മൂന്നുദിവസിൽത്ത് മാരിടൈം ഇന്ത്യാ ഉച്ചകോടി വീഡിയോ ക്ടോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി നന്ദകുമാർ

ജലപാതകളുടെ വികസനത്തിന് വലിയ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്

ചരക്കു ഗതാഗതം ചെലവു കുറഞ്ഞ രീതിയിൽ ശക്തിപ്പെടുത്തും സമുദ്രഗതാഗതവും സമുദ്രാധിഷ്ഠിത സമ്പദ്ഘടനയും ശക്തിപ്പെടുത്താൻ ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നടന്നുവരുന്നത് ഇന്തൃ ഈ രംഗത്തെ സ്വാഭാവിക നേതൃസ്ഥാനത്താണെന്ന് ശ്രീ

ഇന്ത്യയ്ക്ക് മികച്ച നാവിക ചരിത്രമാണുള്ളത് നാവിക വികസന പഥത്തിൽ പങ്കാളിയാവാൻ ലോകരാജൃങ്ങളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യൻ സമുദ്രാഗതാഗത ശൃംഖല വലിയ സംഭവനയാണ് നൽകിയത്

ഉച്ചകോടി പങ്കാളിത്ത രാഷ്ട്രങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഡൻമാർക്ക് ഗതാഗതമന്ത്രി ബെന്നി ഏഞ്ചൽബ്രറ്റ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു

ജെ

ക്ക് ഉജ്ജ്വല വിജയം

ജെ

ജെ

ജെ

ജെ

ജെ പിയോടുള്ള അച്ച്ചുല്ല ് വിശ്വാസത്തിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ശ്രീീനരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

തമിഴ്നാട്ടിലും പഞ്ചാബിലും പ്രത്യേക കേന്ദ്ര സംഘത്തെ നിയോഗിച്ചതായി കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു

വാക്സിനേഷന്റെ രണ്ടാംഘട്ടത്തിന്റെ ആദ്യദിനത്തിൽ അഞ്ചര ലക്ഷത്തിലധികം പേർക്കാണ് വാക്സിൻ നൽകിയത്

വാക്സിൻ സഞ്ജീവനി പോലെ പ്രവർത്തിക്കുമെന്ന് ഡോ

സെക്കന്തരാബാദിലെ ഗാന്ധി ആശുപത്രിയിൽ എത്തിയാണ് അദ്ദേഹം വാക്സിൻ എടുത്തത് നിർദ്ദേശിക്കപ്പെട്ട എല്ലാവരും വാക്സിനേഷന് രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് ശ്രീ

മഹാമാരിയ്ക്കെതിരായ നേട്ടത്തിൽ ശാസ്ത്രജ്ഞരെ ശ്രീ

വിയും ലോക്സഭ ടി വിയും ലയിച്ച് ഒറ്റ സ്ഥാപനമായി സൻസദ് ടി

മുൻ ഐ

രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് തീരുമാനമെടുത്തത്

പരമ്പരാഗത കളിപ്പാട്ട മേഖലയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാല് ദിവസത്തെ കളിപ്പാട്ട മേള സംഘടിപ്പിച്ചത്

കരകൌശല ശിൽപ്പകലാ രംഗത്തുള്ളവർക്കാണ് കളിപ്പാട്ട മേള ഏറെ ഗുണം ചെയ്തത് നിർമ്മാതാക്കൾ വിതരണക്കാർ നിക്ഷേപകർ സംരംഭക വിദഗ്ധർ ചെറുകിട വൃവസായികൾ കരകൌശല വിദഗ്ധർ സ്റ്റാർട്ടപ്പുകൾ കുട്ടികൾ രക്ഷകർത്താക്കൾ എന്നിവരെ ഒരേ വേദിയിൽ അണിനിരത്താനും മേളക്ക് കഴിഞ്ഞു ആഗോള തലത്തിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും പ്രേരണ ലഭിച്ചു

രാജ്യത്തെ പ്രാദേശിക കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനാണ് മേള പ്രധാനമായും ലക്ഷ്യമിട്ടത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരത്തിലേറെപ്പേരാണ് ഈ മേളയുടെ ഭാഗമായത് കേരളവും മേളയിൽ പങ്കാളികളായിരുന്നു

പല ജില്ലകളിലും ലക്ഷ്യമിട്ടതിലും കൂടുതൽ പേർ ആദ്യൂദ്ദിനം തന്നെ വാക്സിൻ സ്വീകരിക്കാനെത്തി പ്രായമുള്ള മറ്റു ഗുരുതര രോഗിക്കളുമാണ് രണ്ടാം ഘട്ടത്തിൽ വാക് സിൻ സ്വീകരിക്കുന്നത്

മുൻഗണനാക്രമം അനുസരിച്ച് എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു

ഗ്ഗോബൽ ബയോ ഇന്ത്യ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവേഷണ വികസന സംരംഭങ്ങൾക്കായി ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു ശ്രീ

ആർ ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഞായറാഴ്ച ജർമനിയെ ബെൽജിയത്തിലെ ആന്റെ്വർപ്പിലേക്ക് പോകുന്ന ഇന്ത്യ മാർച്ച് ആറ് എട്ട് തീയതികളിൽ ബ്രിട്ടനുമായി ഏറ്റുമുട്ടും